നിയന്ത്രണങ്ങൾ നീക്കുണ്ട്മെന്ന ഹർജിയിൽ ജമ്മു കശ്മീർ ഗവൺമെന്റിനും കേന്ദ്ര ഗ്വൺമെന്റിനും അടിയന്തിര നിർദ്ദേശങ്ങൾ നൽകാനില്ലെന്ന് സുപ്രീം കോടതി

കേരളത്തിൽ മിക്കയിടങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യത

മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്

സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിലെ പത്ത് എം

ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേയ്ക്ക് പ്രിയാ്ണം ആരംഭിക്കും

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കശ്മീർ താഴ്വരയിൽ ഘട്ടംഘട്ടമായാണ് നിയന്ത്രണങ്ങൾ നീക്കുന്നത് ഈദ് ആഘോഷം സമാധാനപരമായതിനെ തുടർന്ന് ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ കൂടുതൽ ഭാഗങ്ങളിൽ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് ജമ്മു മേഖലയെ നിയന്ത്രണത്തിൽ നിന്ന് പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട്

അതേസമയം സ്വാതന്ത്രൃദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പരേഡിന്റെയും മറ്റും പരിശീലന പരിപാടികൾ നടന്നു വരുന്നുണ്ട് സ്വാതന്ത്ര്യദിനം മികവാർന്ന രീതിയിൽ ആഘോഷിക്കാനാവുമെന്നും ശ്രീ രോഹിത് കൻസാൽ പ്രതീക്ഷപ്രകടിപ്പിച്ചു ജമ്മു കശ്മീരിലെ എല്ലാ ആശുപത്രികളും ചികിത്സാസൌകര്യങ്ങളിൽ പൂർണ സജ്ജമാണ്ണും അദ്ദേഹം പറഞ്ഞു ആവശ്യത്തിന് മരുന്നുകൾ ശേഖരിച്ചിട്ടുണ്ട് ദേശീയ പാതയിൽ ഗതാഗതം സാധാരണ നിലയിലാണ്ട് വീമാനസർവീസുകളും സാധാരണ നിലയിലാണെന്നും ശ്രീ രോഹിത് കൻസാൽ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

മേഖലയിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനമെന്നും രണ്ടാഴ്ച്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു

ജമ്മുകശ്മീരിലെ നിലവിലെ സ്ഥിതി സങ്കീർണമാണെന്നും പ്രദേശത്ത് സമാധാനം പുനസ്ഥാപിക്കാൻ സമയം ആവശ്യമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു

പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷ്പം പുറത്തിറങ്ങിയവരിലേക്ക് അക്രമികൾ നുഴഞ്ഞുകയറി സേനയ്ക്ക് നേട്രെ കല്ലെറിയുകയായിരുന്നു ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പൃദ്വി ്എടുത്ത് കളഞ്ഞതിനുശേഷം ഇതുവരെ ഒരു ബുള്ളറ്റുപോലും പ്രയോഗിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

കശ്മീരിൽ എവിടെയും നിയന്ത്രണങ്ങളാണെന്നും വാർത്താ വിനിമയവും ആശയവിനിമയവും അവിടെ സാധ്യമല്ലെന്നും പാർട്ടി നേതാവ് ആനന്ദ് ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ കശ്മീർ സന്ദർശിക്കാൻ അനുവദിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അവസരമൊരുക്കണമെന്ന് ശ്രീ ആനന്ദ് ശർമ്മ ഗവൺമെന്റിനോടാവശ്യപ്പെട്ടു

കശ്മീർവിഷയത്തിൽഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ പിന്തുണ നേടുകയെന്നത് പ്രയാസമുള്ളകാര്യമാണെന്ന്അദ്ദേഹംകൂട്ടിച്ചേർത്തു ജമ്മു കാശ്മിരിന്റെ പ്രത്യേക പദവി പിൻവലിച്ച ഇന്ത്യയുടെ നടപടിക്കെതിരെഅന്താരാഷ്ട്ര മുസ്തിംസമുദായത്തിന്റെ പിന്തുണയുംആർജ്ജിക്കാനാകില്ല

പരസ്പര ചർച്ചയിലൂടെ പ്പശ്ന്ം പരിഹരിക്കണമെന്ന്അമേരിക്കയും നിലപാട്സ്വീകരിച്ചിട്ടുണ്ട്

അസമിനെ സംബന്ധിച്ച പൌരത്വരജിസ്റ്റർതയ്യാറാക്കുന്നത് ആധാർ പോലെയുള്ളഒരുവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗെഗോയ് ജസ്റ്റിസ്ആർ

നിയമപരമായചിലവെല്ലുവിളികളുടെഅടിസ്ഥാനത്തിൽ നിലവിൽതയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രജിസ്റ്റർ പുനക്രമീകരിക്കണമെന്ന് പറയാനാകില്ലെന്ന്കോടതി പറഞ്ഞു

ഈ ജില്ലകളിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയേറുമെന്ന് കാലാവസ്ഥാവകുപ്പ്അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽഎറണാകുളം കോഴിക്കോട് വയനാട് തൃശൂർ മലപ്പുറം കണ്ണൂർ കോട്ടയംജില്ലകളിൽ നാളെ വിദ്യാഭ്യാസസ്ഥാപനങ്ങൾക്ക്കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു

ഇക്കാലയളവിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് അതിനിടെ സംസ്ഥാനം നേരിടുന്ന ദുരിതത്തെയും ബുദ്ധിമുട്ടുകളെയും ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഗവൺമെന്റ് ജനങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് മഴക്കെടുതിയിൽ ദുരന്തം നേരിട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും വയനാട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു

ബിജെപി ജനറൽ സെക്രട്ടറി രാംമാധവിന്റെ സാന്നികൃത്തിലായിരുന്നു ഇത് സിക്കിമിന്റെ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാനാണ് താത്പര്യമെന്ന് എസ് ഡി എഫിന്റെ മുതിർന്ന നേതാവ് ദോർജി ഷെറിംഗ് പറഞ്ഞു

മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബിന്റെയും ഉപമുഖ്യമന്ത്രി ജിഷ്ണു ദേബ് ബർമയുടേയും സാന്നിധൃത്തിൽ ധാകൈ ജില്ലയിലായിരുന്നു കീഴടങ്ങൽ കഴിഞ്ഞ ഞായറാഴ്ച നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് സാബിർ ദേബ് ബർമ വിഭാഗവും ത്രിപുര ഗവൺമെൻ്റും കേന്ദ്ര ഗവൺമെൻ്റും ധാരണാ പത്രത്തിൽ ഒപ്പു വെച്ചിരുന്നു

ആർ

ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോ

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

വ്യാഴാഴ്ച്ച സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും

രണ്ടാം തവണ അധികാര്ത്തിലെത്തിയ ശേഷം ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സ്വാതന്ത്രൃദിന പ്രസംഗമായിരിക്കും

ജമ്മുകൾ്മീർ ലഡാക്ക് എന്നിവടിങ്ങളിലും സ്വാതന്ത്രൃദിനാഘോഷവുമായി ്രബന്ധപ്പെട്ട് പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്

മികച്ച പാർലമെന്റെറിയനെയും നേതാവിനെയുമാണ് സുഷമ സ്വരാജിന്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായതെന്ന് മന്ത്രിസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു

ഇക്കാര്യം അന്വേഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്